നിന്നു ശക്തിപ്രാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആർ ഡി

അന്താരാഷ്ട്ര യാത്രാനിയന്ത്രണങ്ങളിൽ ഇളവ്

സാമൂഹ്യ അകലം പാലിച്ചും മുഖാവരണം ധരിച്ചും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച അദ്ദേഹം ബംഗാളി ഭാഷയിൽ ജനങ്ങൾക്ക് പൂജ ആശംസകളുമേകി ദുർഗയ്ക്ക് നൽകുന്ന അതേ ബഹുമാനം രാജ്യത്തെ സ്ത്രീകൾക്കും നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിനായി കേന്ദ്രസർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം ബംഗാളിൽ നിന്നാണ് ശക്തിപ്രാപിക്കുക

സംസ്ഥാനത്തെ കർഷകർക്കായി കിസാൻ സൂര്യോദയു പദ്ധതിയും അദ്ദേഹം ആരംഭിക്കും

ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഐടി സെക്രട്ടറി അജയ് സാവ്നി ടിറ്റർ സിഇഒ ജാക്ക് ഡോർസിയ്ക്ക് കത്തയച്ചു ഇത്തരം സംഭവങ്ങൾ ടിറ്ററിനോടുള്ള മതിപ്പു കുറയ്ക്കാൻ ഇടയാക്കും മാത്രമല്ല കമ്പനിയുടെ നിഷ്പക്ഷതയും ന്യായബോധവും ചോദ്യം ചെയ്യപ്പെടുമെന്നും ശ്രീ

ആർ

ഒ വികസിപ്പിച്ചു നാഗ് മിസൈലിന്റെ അന്തിമപരീക്ഷണം വിജയം

ടാങ്കുകൾ ആക്രമിച്ചു തകർക്കാൻ ശേഷിയുള്ളതാണ് നാഗ് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഡി

എസ് കവരത്തി നാവികസേന നീറ്റിലിറക്കി

വിശാഖപട്ടണത്തെ നാവികസേന കപ്പൽശാലയിൽ നടന്ന ചടങ്ങളിൽ കരസേന മേധാവി മനോജ് മുകുന്ദ് നരവനെയാണ് കപ്പൽ നാവികസേനയ്ക്ക് കൈമാറിയത്

കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ

സി ഐ പി ഐ ഒ കാർഡുകൾ ഉള്ളവർക്കും വിദേശികൾക്കും വിമാന മാർഗ്ഗമോ കടൽ മാർഗ്ഗമോ ഇന്ത്യയിലേക്ക് വരാം വന്ദേ ഭാരത് ദൌതൃത്തിനു കീഴിലുള്ള വിമാനങ്ങൾ എയർ ബബിൾ സംവിധാനത്തിലൂടെയുള്ള യാത്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെയുള്ള വിമാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും

പുതുക്കിനൽകാനും സർക്കാർ വൈദ്യചികിത്സയ്ക്കായി ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദേശ പൌരന്മാർക്ക് മെഡിക്കൽ വിസയ്ക്കായി അപേക്ഷിക്കാം വൃവസായം കൂടിക്കാഴ്ച ജോലി പഠനം ഗവേഷണം മെഡിക്കൽ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വിദേശികൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ അവസരം നൽകുന്നതാണ് ഈ തീരുമാനം ന്യൂസ് ഡസ്ക് ആകാശവാണി

സർക്കാർ ജീവനക്കാർക്ക് പുറമേ ബാങ്ക് ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നൽകുന്ന ഡി എ കണക്കാക്കാനാണ് പ്രധാനമായും ഇൌ വിലസൂചിക ഉപയോഗിക്കുക എന്നും ശ്രീ

ഓരോ ദശലക്ഷത്തിലും ഏറ്റവും കുറവ് കോവിഡ് ബാധയുള്ള ലോക്രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ

ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ കോഴിക്കോട്ടാണ്

ഗർഭിണികൾക്ക് ചികിത്സ നിഷേധിക്കുന്നു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

രോഗ ബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ്

പോയിന്റ് പട്ടികയിൽ ഏറെ പിന്നിലുള്ള രണ്ടു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മ നിർഭർ ഭാരത് കാഴ്ചപ്പാടിന് അനുസരിച്ച് രാജ്യത്ത് കപ്പൽ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ മന്ത്രാലയം കൈകൊണ്ട് വരുന്നതായി കേന്ദ്ര സഹമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു

ജെ

പട്നയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ധനമന്ത്രി കൂടിയായ ബി ജെ പി നേതാവ് നിർമല സീതാരാമനും മുതിർന്ന നേതാക്കളും ചേർന്നാണ് പത്രിക പുറത്തിറക്കിയത്

ബിഹാറിലെ മുതിർന്ന മൂന്ന് ബി ജെ

ഉപമുഖൃമന്ത്രി സുശീൽ കുമാർ മോദി മുൻ കേന്ദ്ര മന്ത്രി രാജീവ് പ്രതാപ് റൂഡി സയിദ് ഷാനവാസ് ഹുസ്സൈൻ എന്നിവർക്കാണ് രോഗം ബാധിച്ചത് കോവിഡ് നിർദേശങ്ങൾ ലംഘിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്

ബി

ഇതോടെ മഹാരാഷ്ട്രയിലെ ക്ഷേസുകൾ സി ബി

ഇതു സംബന്ധിച്ച ഉത്തരവ് മഹാരാഷ്ട്ര സർക്കാർ പുറത്തിറക്കി

ജോ ബൈഡനും കമല ഹാരിസിനും വോട്ട് ചെയ്യണമെന്ന് ഒബാമ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു